റാഫേൽ കേസിലെ വിവാദ പരാമർശത്തിൽ രേഖാമൂലം മാപ്പ് നൽകാൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീംകോടതി സാവകാശം അനുവദിച്ചു

നാലാഴ്ചത്തെ സമയമാണ് അറ്റോർണി ജനറൽ ആവ്ശ്യപ്പെട്ടത് എന്നാൽ കോടതി ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ എസ് കെ കൌൾ കെ എം ജോസഫ് എന്നിവരടങ്ങുന്ന ബഞ്ചാണ് കേസ് പരിഗണിച്ചത് അതിനിടെ റാഫേൽ കേസിലെ വിവാദപരാമർശത്തിൽ കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി സുപ്രീംകോടതിയിൽ മാപ്പ് പറഞ്ഞു എന്നാൽ അടുത്തമാസം ആറിനകം രേഖാമൂലം തന്നെ മാപ്പ് എഴുതി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു

ബി ജെ പി എം പി സുബ്രഹ്മണ്യം സ്വാമി നൽകിയ പരാതിയിലാണ് നോട്ടീസ് അയച്ചത് ഇത് സംബന്ധിച്ച് രാഹുൽഗാന്ധി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണം രാഹുൽഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വം ഉണ്ടെന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരോപണം

ജെ

ഇതിൽ രാഷ്ട്രീയമില്ലെന്ന് ബി ജെ

രാഹുൽഗാന്ധിയുടെ പൌരത്വം സംബന്ധിച്ച് യാതൊരു നിഗൂഢതകളുമുണ്ടാകരുതെന്ന് ബി ജെ

പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചു വിടാനുള്ള ബി ജെ

രാഹുൽഗാന്ധിക്ക് പൌരത്വ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം നൽകിയ നോട്ടീസ് എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു

വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ കൂടുതൽ വിവരങ്ങളുമായി കവിതാ സുനു

ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ബരബംഗിയിലും ബഹ്റിച്ചിലും ബീഹാറിലെ മുസാഫർപൂറിലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു

എസ് പ്പിയ്ക്കുട്ട് സമാജ്വാദി പാർട്ടിയും അധികാരത്തിലിരുന്നപ്പോൾ സംസ്കാന്റുത്തെ കൊള്ളയടിക്കുകയായിരുന്നെന്നും അവരുടെ ഇപ്പോഴത്തെ ഏക അജണ്ട മോദിയെ അധികാര്ത്തിൽ നിന്നും പുറത്താക്കുക എന്നതാണെന്നും ബരബ്ട്ഗിയിലെ പൊതുയോഗത്തിൽ ശ്രീ

വികസന്ത്തിനായി രാജ്യത്തിന് ശക്തമായ ഒരു ഗവൺമെന്റ് ആവശ്യമാണെന്നും ബി ജെ പിക്ക് മാത്രമെ അതിന് സാധിക്കൂവെന്നും ബഹ്റിച്ചിൽ ശ്രീ

എ ഗവൺമെന്റ് രാജ്യസുരക്ഷയ്ക്ക് പ്രതിജ്ഞാബദ്ധരായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അത്തരമൊരു അജണ്ടപോലുമില്ലെന്ന് ശ്രീ

എ ഗവൺമെന്റ് രാജ്യ സുരക്ഷയ്ക്കായാണ് പ്രവർത്തിക്കുന്നതെന്നും തീവ്രവാദികൾക്ക് തക്കമറുപടി നൽകിയിട്ടുണ്ടെന്നും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ രാജസ്ഥാനിലെ ദൌസയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പറഞ്ഞു

ജെ പി നേത്യുവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും ബി

പി അധ്യക്ഷൻ അമിത്ഷായും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന ഹർജിയിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ആരാഞ്ഞു കോൺഗ്രസ് നേതാവ് സുസ്മിതാ ദേവ് ഫയൽ ചെയ്ത ഹർജിയിൽ ബി ജെ പിയുടെ ഇരു നേതാക്കളും വിദ്വേഷ പ്രസംഗം നടത്തിയെന്നും രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് സായുധസേനയെ ഉപയോഗിച്ചെന്നുമാണ് ആരോപണം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

പരാതിയിൽ കമ്മീഷന് സ്വതന്ത്രമായ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് കോടതി വ്യക്തമാക്കി കോൺഗ്രസ് നേതാവിന്റെ ഹർജിയിൽ കോടതി വ്യാഴാഴ്ച വാദം കേൾക്കും

ജെ

ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് ഭ്യാക്ടീസറുടെ കാര്യാലയം അറിയിച്ചു ദേശീയ തലസ്ഥാന നൃഗ്ത്രീയിൽ നിന്ന് ദ ലക്ഷത്തിലധികം ബാനറുകളും പ്ലോസ്റ്ററുകളും പരസ്യ ബോർഡുകളും അധികാരിക്കൾ നീക്കം ചെയ്തു

ഐ

ന്യൂഡൽഹിയിൽ ഡോ രാജാറാം ജയ്പൂരിയ അനുസ്മരണം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വിജ്ഞാന നൂതന ആശയ സിരാകേന്ദ്രമായി ഇന്ത്യയെ മാറ്റിയെടുക്കേണ്ട സമയമായെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ചിന്താശേഷിയെയും ഭാവനയേയും പരിപ്യൂഷിക്കുന്ന രീതിയിലേക്ക് പാഠ്യപദ്ധതി പുതുക്കേണ്ടതുണ്ടെന്ന് ശ്രീക്ടിരിയി്ഡു അഭിപ്രായപ്പെട്ടു

ബി ഐ യുടെ അഭ്യർത്ഥനയെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ സുപ്രീംകോടതി സി ബി ഐ യോട് ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് തെളിവുകൾ ആവശ്യപ്പെട്ടത്

ബി ഐ

രാജീവ് കുമാറിനെതിരായ തെളിവുകൾ നാളെ ഹാജരാക്കുമെന്ന് മേഹ്ത്ത കോടതിയെ അറിയിച്ചു കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി നാളെത്തേയ്ക്ക് മാറ്റി

ധോണിയുമായുള്ള എല്ലാ പണമിടപാടുകളും സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് അമ്രപാളി ഗ്രൂപ്പിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു നാളെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറേണ്ടത്

അമ്രപാളി പദ്ധതിയുടെ ഒരു ആഡംബര ഫ്ളാറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച വിഷയത്തിലും ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ ഓഹരി ഉടമകളിൽ ഒരാളായി തന്നെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കോടതിയെ സമീപിച്ചിരുന്നു ബ്രാ്ന്റ് അംബാസിഡറായി പ്രവർത്തിച്ചതിനുള്ള മുഴുവൻ തുകയുട് ന്റൽകാതെ റിയൽ എസ്റ്റേറ്റ് കമ്പനി വഞ്ചിച്ചെന്നാണ് ധോണിയുടെ ആരോപണം

കിരൺ ബേദിക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ തിരിച്ചടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ സർവ്വീസ് കാര്യങ്ങളിൽ ഇടപെടാനോ ഉള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് ഇല്ലെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിന്റെ വിധി കോൺഗ്രസ് നിയമസഭാ സാമാജകൻ കെ ലക്ഷ്മിനാരായണന്റെ അഭ്യർത്ഥന പരിഗണിച്ച കോടതി തെരഞ്ഞടുക്കപ്പെടുന്ന ഗവൺമെന്റിനാണ് സർവ്വീസ് സംബന്ധമായ വിഷയങ്ങളിൽ പൂർണ്ണ അധികാരമെന്ന് വിശദമാക്കി ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം സംബന്ധിച്ച് കേന്ദ്രം പുറത്തിറക്കിയ രണ്ട് ഉത്തരവുകളും കോടതി റദ്ദാക്കി

ദേശീയ ദുരന്തനിവാരണ സമിതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഫണ്ട് അനുവദിക്കുന്നത്